ഒരുക്കങ്ങൾ അന്തിമഘട്ട ത്തിൽ

ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലെത്തി കനത്ത സുരക്ഷയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തു ന്നത് എക്സിറ്റ്പോൾ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ആശയിലും ആശങ്കയിലും കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ജനങ്ങളും അന്തിമഫലത്തി നായി കാത്തിരിക്കുകയാണ്

തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക തുടർന്ന് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകളും എണ്ണും ഇതോടെ ആദ്യ ലീഡുവിവരങ്ങൾ പുറത്തുവരും ഉച്ചയോടെ ഫലസൂചനകൾ അറിയാമെങ്കിലും ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും അഞ്ചു ബൂത്തുകളിലെ വിവിപാറ്റ് സ്ലിപ്പുകൾ കൂടി എണ്ണുന്ന തിനാൽ അന്തിമ ഫലപ്രഖ്യാപനം വൈകും

വിവിപാറ്റ് ബാലറ്റുകൾ എണ്ണുന്നതിന് എല്ലാ കൌണ്ടിംഗ് ബൂത്തുകളിലും പ്രത്യേക സജ്ജീകരണം ഒരുക്കി യിട്ടുണ്ട് വോട്ടിംഗ് യന്ത്രത്തിലെയും വിവിപാറ്റിലെയും വോട്ടിൽ വ്യത്യാസമുണ്ടെ ങ്കിൽ വിവി പാറ്റ് ഫലമാണ് അന്തിമമായി പരിഗണിക്കുക

് ് ് ് ് ് ് ് ് തെരഞ്ഞെടുപ്പ് ഫലവും ലീഡ് നിലയും ആകാശവാണി വാർത്താവി ഭാഗം അപ്പപ്പോൾ ശ്രോതാക്കളിലെത്തിക്കും തൽസമയ ലീഡ് നിലകളും പ്രവ ണതകളും ഫലവും വിശകലനങ്ങളും ദേശീയ പ്രാദേശിക നിലയങ്ങൾ പ്രക്ഷേ പണം ചെയ്യും

വിദഗ്ദ്ധരെ പങ്കെടുപ്പിച്ച് തെര ഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്ന പാനൽ ചർച്ചകളും ഒരുക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം ലഭ്യമാക്കുന്നതിന് ഗൂഗിളുമായി ചേർന്ന് പ്രസാർഭാ രതി സംവിധാനമൊരുക്കി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

പോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകളുമായി ഇതിൽ വ്യത്യാസം കണ്ടാൽ ആ നിയമ സഭാ മണ്ഡലത്തിലെ എല്ലാ വിവി പാറ്റുകളും ഒത്തുനോക്കണമെന്നും കമ്മീഷ നോട് ആവശ്യപ്പെട്ടതായി കോൺഗ്രസ് നേതാവ് ഗുലാംനബി ആസാദ് പിന്നീട് മാധ്യമങ്ങളെ അറിയിച്ചു ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം ചേരാമെന്ന് കമ്മീഷൻ അറിയിച്ചതായി കോൺഗ്രസ് വക്താവ് അഭിഷേക് സിംഗ്വി പറഞ്ഞു കഴിഞ്ഞ ഒന്നരമാസമായി നിരന്തരം ഈയാവശ്യം ഉന്നയിച്ചിട്ടും കമ്മീഷൻ പ്രതി കരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടിംഗ് യന്ത്രങ്ങളിൽ തിരിമറി നടത്തുന്ന തായി സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നതിലെ ആശങ്കയും പ്രതിപക്ഷം കമ്മീഷനെ അറിയിച്ചു ഇക്കാര്യത്തിൽ സുതാര്യത ഉറപ്പുവരുത്തണ മെന്നും അവർ ആവശ്യപ്പെട്ടു ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു വിന്റെ നേതൃത്വത്തിൽ സി പി ഐ എം സി പി ഐ ബി എസ് പി ആംആദ്മി പാർട്ടി ഡി എം കെ തുടങ്ങിയ പാർട്ടികളുടെ നേതാക്കളാണ് തെരഞ്ഞെടുപ്പ് കമ്മീ ഷനെ കണ്ടത്

ഉത്തർപ്രദേശ് ബിഹാർ ഹരിയാന പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരം പരാതികൾ ഉയർന്നിട്ടുണ്ടെന്നും ജനങ്ങളുടെ സംശയവും ആശങ്കയും വർദ്ധിക്കുകയാണെന്നും പാർട്ടി വക്താവ് രാജീവ് ശുക്ല ന്യൂഡൽഹിയിൽ പറഞ്ഞു ് ് ് ് ് ് ് ് പോളിംഗിനുപയോഗിച്ചശേഷം സ്ട്രോംഗ് റൂമുകളിൽ സൂക്ഷിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ മാറ്റി പകരം വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ഥാപി ക്കാൻ നീക്കം നടക്കുന്നതായി ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു മാധ്യമങ്ങളിലെ ദൃശ്യങ്ങളിൽ കാണുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുപയോ ഗിച്ചതല്ലെന്ന് കമ്മീഷൻ ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി വോട്ടിംഗ് പൂർത്തിയായി ക്കഴിഞ്ഞശേഷം ശക്തമായ കാവലിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റുകളും നിർദ്ദിഷ്ട വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത് സ്ഥാനാർത്ഥി കളുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായി രുന്നു ഇതെന്നും കമ്മീഷൻ അറിയിച്ചു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത റിസർവ് വോട്ടിംഗ് യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് മാധ്യമങ്ങ ളിൽ പ്രചരിക്കുന്നതെന്ന് കമ്മീഷൻ വൃക്തമാക്കി റിസർവ് വോട്ടിംഗ് യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശ ദമായി അന്വേഷിക്കുമെന്നും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി കൈക്കൊള്ളുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളെകുറിച്ച് പ്രതിപക്ഷം അനാവശ്യ വിവാദം സൃഷ്ടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ന്യൂഡൽഹി യിൽ എൻ ഡി എ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തീർത്ഥയാത്രപോലെയാണ് തനിയ്ക്ക് അനുഭവ പ്പെട്ടതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അഞ്ചുവർഷത്തെ ഗവൺമെന്റി ന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമായാണ് ജനവിധിയെ കാണു ന്നത് ജയിക്കാനോ ആരെയെങ്കിലും തോല്പിക്കാനോ ആയിരുന്നില്ല തെരഞ്ഞെ ടുപ്പെന്നും പാർട്ടി ഒറ്റയ്ക്കല്ല ജനങ്ങൾ ഒന്നടങ്കമാണ് പോരാടിയതെന്നും പ്രധാന മന്ത്രി പറഞ്ഞു ് ് ് ് ് ് ് മാതൃകാ പെരുമാറ്റ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട ഉത്തരവുകളിൽ തന്റെ എതിർപ്പ് പരസ്യപ്പെടുത്തണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസയുടെ ആവശ്യം ന്യൂഡൽഹിയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണയോഗം തള്ളി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ അംഗങ്ങളായ അശോക് ലവാസ സുശീൽ ചന്ദ്ര എന്നിവർ പങ്കെടുത്ത് യോഗം ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് ആവശ്യം തള്ളിയത് എതിർപ്പുകളും ഇത്തരം അഭിപ്രായങ്ങളും രേഖകളുടെ ഭാഗമായി സൂക്ഷിക്കുമെന്നും ഉത്തരവിൽ കാണി ക്കില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് അറിയിച്ചു ് ് ് ് ് ് അതേസമയം സുതാര്യതയാണ് പ്രധാനമെന്ന് താനിപ്പോഴും വിശ്വ സിക്കുന്നതായി യോഗത്തിനുശേഷം അശോക് ലവാസ വാർത്താ ഏജൻസിയായ പി ടി ഐയോട് പറഞ്ഞു കമ്മീഷനിലെ ന്യൂനപക്ഷ അഭിപ്രായങ്ങളും ഉത്തര വിൽ ഉൾപ്പെടുത്തണം

ഇതുപ്രകാരം ജില്ലയിലെ മദ്യശാലകൾ ഹോട്ടലുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ മദ്യമോ മറ്റ് ലഹരി പദാർഥങ്ങളോ വിൽക്കാനോ വിതരണം ചെയ്യാനോ പാടില്ലെന്ന് ജില്ലാ കലക്ടർ മീർ മുഹമ്മദലി അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിജയാഘോഷങ്ങൾ നിയന്ത്രിക്കാൻ തിരൂരിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു

യോഗത്തിൽ തിരൂർ താനൂർ തവനൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളും പൊലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു

റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിന് ഹയർ സെക്കന്ററി പരീക്ഷയുടെ ഓൺലൈൻ മാർക്ക് സമർപ്പണം ഇന്ന് തുടങ്ങിയേക്കും അടുത്തമാസം ഏഴി നാണ് എഞ്ചിനിയറിംഗ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുക

എസ് എസ് എൽ സി ജയിച്ച ആറു വിദ്യാർത്ഥികളോ ടാണ് പ്ലസ് വണ്ണിന് ഇതേ സ്കൂളിൽ പഠിക്കണമെന്നും അല്ലാത്തപക്ഷം ടി സി നൽകാൻ ഒരുലക്ഷം രൂപ നൽകണമെന്നും മാനേജർ ആവശ്യപ്പെട്ടത് വിദ്യാർത്ഥി കൾ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി ് ് ് ് ് ് ് ് കോയമ്പത്തൂരിൽ ദേശീയ യൂത്ത് ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരളത്തിന് കിരീടം

ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരളം റണ്ണറപ്പായി ഹരിയാനയാണ് ജേതാക്കൾ

പൊന്നാനി തവനൂർ പഞ്ചായത്തിലെ മൂന്നും തിരൂർ താലൂക്കിലെ നാലും പദ്ധതികളാണ് പ്രതിസന്ധിയിലായത് തിരൂർ താലൂക്കിലെ പകുതിയിലധികം ഭാഗത്ത് കുടിവെള്ളം വിതരണം ചെയ്യുന്ന തിരുന്നാവായയിലെ രണ്ട്വൻ പദ്ധതികൾ പൂർണമായി പമ്പിങ് നിർത്തിയിരിക്കയാണ്

തൃത്താല വെള്ളിയാങ്കല്ല് റഗുലേറ്ററിലെ ഷട്ടറുകൾ തുറന്ന് തിരൂർ പൊന്നാനി താലൂക്കുകളെ ബാധിക്കുന്ന ജലദൌർലഭ്യം പരിഹരിക്കണം എന്ന ആവശ്യം ശക്തമായിരിക്കയാണ് സംസ്ഥാനത്തുണ്ടായ മഹാപ്രളയത്തിന് കാരണം ഡാമുകൾ ഒന്നിച്ച് തുറന്നുവിട്ടത് കൊണ്ടാണെന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ട് തള്ളണമെന്ന് ഗവൺമെന്റ് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നടപടി യാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് ആരോപിച്ചു അമിക്കസ് ക്യൂറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനിർമ്മിത പ്രളയത്തെകുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ഉത്തരവാദികളെ നിയമത്തിനുമുന്നിൽ കൊണ്ടു വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് പ്രസ്താവനയിൽ പറഞ്ഞു മാതൃശിശുക്ഷേമ പ്രവത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന ലക്ഷ്യ പദ്ധതിയുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിനായി കേന്ദ്ര കുടുംബാരോഗൃ ക്ഷേമ വകുപ്പ് ഫാമിലി പ്ലാനിംഗ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ്

സിക്ദർ കണ്ണൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രി സന്ദർശിച്ചു

ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൌരോർജ്ജ വിമാനത്താവളമാണ് കൊച്ചി വിമാനത്താവളം

സിയാലിന്റെ സൌരോർജ്ജ പദ്ധതിയെകുറിച്ച് മനസ്സിലാക്കാ നാണ് സംഘം എത്തുന്നത് ം ം ം കല്ല്യോട്ടെ ഇരട്ടക്കൊലപാതക കേസിൽ കോടതിയിൽ സമർപ്പിച്ച കുറ്റു പത്രത്തിന്റെ പരിശോധന ഇന്നുകൂടി തുടരും

അതേസമയം ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം സി പി ഐ എം തയ്യാറാക്കിയതാണെന്ന് കാസർകോട് ഡി സി സി പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ആരോപിച്ചു കാസർകോട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കൈയ്യേറ്റം ചെയ്ത കേസിൽ മൂന്നു സി പി ഐ എം പ്രവർത്തകരെ പൊലീസ് അറസ്റ്റ് ചെയ്തു സിറോ മലബാർ സഭ കർദ്ദിനാൾ മാർ ജോർജ്ജ് ആലഞ്ചേരിക്കെതിരെ വ്യാജരേഖ ചമച്ച കേസിൽ വൈദികൻ ടോണി കല്ലൂക്കാരനെ പ്രതി ചേർത്തു മുൻപ് അറസ്റ്റിലായ് ആദിത്യന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ടോണി കല്ലൂ ക്കാരനെ പ്രതി ചേർത്തത് കേസ്സിലെ നാലാം പ്രതിയാണ് വൈദികൻ ് ് ് ് ് ് ് ് പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നൂറ് മീറ്റർ പരി ധിയിൽ ലഹരി വസ്തുക്കൾ വില്ക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരി ക്കുമെന്ന് ജില്ലാ കലക്ടർ പി

സ്കൂൾ വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗത്തിന് തടയിടുന്നതിനായി അധ്യാപകർ അടങ്ങുന്ന സംഘത്തെ നിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു